രാജ്യത്തെ എല്ലാ സൌകര്യങ്ങളും സാധാരണക്കാർക്കും ഉറപ്പാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

മഹാരാഷ്ട്രയിൽ വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്തി ഇന്ന് തുടക്കം കുറിച്ചു

വോയിസ് എല്ലാവർക്കുമൊപ്പം എല്ലാവരുടെയും വികസനം എന്ന ലക്ഷ്യവുമായാണ് ഗവൺമെന്റ് മുന്നോട്ടു പോകുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു

സമൂഹത്തിലെ എല്ലാ വിഭാഗത്തിനും തുല്യ നീതി ഉറപ്പാക്കാനാണ് ഗവൺമന്റിന്റെ ശ്രമമെന്നും ശ്രീ

ദേശീയ പൌരത്വ രജിസ്ട്രറിന്റെ കാര്യത്തിൽ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ജനങ്ങളുടെ താത്പര്യങ്ങൾ പൂർണമായും സംരക്ഷിക്കുമെന്നും പ്രധാനമന്ത്രി ആവർത്തിച്ചു വൃക്തമാക്കി

കേന്ദ്രമന്ത്രി നിത്രിഏ ഗഡ്കരി മഹാരാഷ്ട്ര ഗവർണർ സി വിദ്യാസാഗർറാണ്ട് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ് എന്നിവർ സംബന്ധിച്ചു

ആഗ്രയിൽ പൊതു സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം ജനങ്ങളെ ഭിന്നിപ്പിക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നത് രാജ്യത്തെ എല്ലാ സൌകാര്യങ്ങളും സാധാരണക്കാർക്കു കൂടി ലഭ്യമാക്കാനുള്ള നടപടികളുമായാണ് ഗവൺമെന്റ് മുന്നോട്ടു പോകുന്നത് ഒരു വിഭാഗത്തിനും ദോഷമുണ്ടാകാത്ത വിധമാണ് ഗവൺമെന്റ് നയപരിപാടികൾ ആവിഷ്ക്കരിച്ചു നടപ്പാക്കുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ഗംഗാജൽ പ്രോജക്ട് ഉൾപ്പെടെ വിവിധ വികസന പദ്ധതികൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു

ഗുണഭോക്താക്കളുടെ സാമ്പത്തികവും വിദ്യാഭ്യാസപരവുമായ ശാക്തീകരണമാണ് ബിൽ ലക്ഷ്യമിടുന്നതെന്ന് ബിൽ സഭയിൽ അവതരിപ്പിച്ച കേന്ദ്രമന്ത്രി താവർ ചൂന്ദ് ഹൃഗഹ്ലോട്ട് പറഞ്ഞു

ഇക്കാര്യത്തിൽ തീരുമാന്ദ്മെടുത്തിരുന്നു ദീർഘകാലത്തെ ആവശ്യമാണ് ഇപ്പോൾ യാഥാർത്ഥ്യമാകുന്നതെന്നും അദ്ദേഹം വൃക്തമാക്കി ബില്ലിക്ക് പിന്തുണക്കുന്നതായും എന്നാൽ ബിൽ സഭയിൽ കൊണ്ടുവരാൻ നിശ്ചയിച്ച സമയം സംശയകരമാണെന്നും ലക്ഷ്യമാണ് ഗവൺമെന്റിനെന്നും കോൺഗ്രസ് അംഗം ആനന്ദ് ശർമ അറിയിച്ചു

ന്യൂഡൽഹിയിൽ ചേർന്ന കേന്ദ്രമന്ത്രിസഭയുടെ പാർലമെന്ററികാര്യ സമിതിയോഗമാണ് തീരുമാനമെടുത്തത്

ഉപഭോക്തൃരംഗത്തെ സാമ്പത്തിക വിനിമയം ഒന്നര ട്രില്ല്യൻ യൂ്എസ് ഡോളറിൽ നിന്ന് െട്രില്ല്യണായി ഉയരും

അതിർത്തി പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കണമെന്ന നിലപാടിൽ മാറ്റമില്ല എന്നാൽ അതിർത്തി രാജ്യങ്ങളുടെ സമീപനവും നിലപാടും യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടുന്നതായിരിക്കണമെന്ന് സുഷ്മാസ്വരാജ് പറഞ്ഞു ന്യൂഡൽഹിയിൽ നാലാമത് റെയ്സീനാ സംവാദത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അവർ

റയ്സിനാ സംവാദത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ

എസ് ആർ

ചില രംഗങ്ങളിൽ പിന്നിലാണെങ്കിലും സ്ഥിതി ഏറെ മെച്ചപ്പെട്ടുവരികയാണ് ലിംഗനീതി അർത്ഥ ശാസ്ത്രത്തിൽ പോലൂം പ്രതിപാദിച്ചിട്ടുള്ളതാണെന്ന് സ്മൃതി ഇറാനി പറഞ്ഞു

കേന്ദ്ര കായികമന്ത്രി രാജ്വർദ്ധൻ റാഥോഡ് ഉദ്ഘാടനം ചെയും ഉദ്ഘാടന ചടങ്ങുകൾ പുരോഗമിക്കുന്നു കൂടുതൽ വിവരങ്ങളുമായി ഷീജ ഗണേഷ്

പുരുഷ്ൻ മാരുടെ ഹോക്കി മത്സരം തിങ്കളാഴ്ച മുംബൈയിൽ ആരംഭിച്ചു യൂത്ത് ഒളിമ്പിക്സിൽ ഷൂട്ടിംഗ് വിഭാഗത്തിലെ സ്പ്ർണ്ണ്മെഡൽ ജേതാവ് മനു ഭേക്കർ സൌരഭ് ചൌധരി വെയ്റ്റ് ലിഫ്റ്റർ ജാറമി ലാൽ റിനുങ്ക എന്നിവർ മേളയിൽ പങ്കെടുക്കു്തു്

കൌമാര കായിക താരങ്ങളെ പ്രത്സാഹിപ്പിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് നേരിട്ട് നടത്തുന്ന കായികമേളയാണ് ഖേലോ ഇന്ത്യ രാജ്യാന്തര മത്സരങ്ങളിൽ രാജ്യത്തെ കായിക താരങ്ങളെ പ്രാപ്തരാക്കുകയാണ് പ്രധാന ലക്ഷ്യം

പൂനെയിൽ ബൌദ്ധികോത്സവത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം

എഫ് പ്രസിഡന്റ് അഹമ്മദ് അഹമ്മദാണ് ഇക്കാർട്ടും അറിയിച്ചത്

ഗവൺമെന്റ് ഓഫീസുകളിൽ ഹാജർനില ഇന്നും കുറവായിരുന്നു ഇടുക്കിയിലെ തോട്ടം മേഖലയും നിശ്ചലമായി

ഡൽഹിയിലെ നാഷണൽ ഹെറാൾഡിന്റെ ഓഫീസ് ഒഴിയണമെന്ന ഉത്തരവിനെതിരെ അസോസിയേറ്റഡ് ജേണൽസാണ് കോടതിയെ വീണ്ടും സമീപിച്ചത്

ഡൽഹിയിലെ പാനൽ ് ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം